പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിസോറാമിൽ

ഗുരുനാനാക്ക് ജയന്തിയും കാർത്തിക പൂർണ്ണിമയും ആഘോഷിക്കുന്നു

രാജസ്ഥാൻ തെലങ്കാന സംസ്കാനങ്ങ്ളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേയ്ക്ക് സമർപ്പിച്ചു നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപ്പരിധി അവസാനിച്ചു

അതിനിടെ തെലങ്കാനയിലെ നിയമസഭ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒ

റാവത്തും സംഘവും ഹൈദരാബാദിലെത്തി

കോൺഗ്രസിനും ബി

പിക്കും പുറമെ മിസോ നാഷണൽ ഫ്രണ്ട് സോറം പീപ്പിൾസ് ഫ്രണ്ട് എന്നീ പ്രാദേശിക കക്ഷികളുടെയും നേതാക്കളും പ്രചാരണ രംഗത്ത് സജീവമാണ് വിവിധ പ്രചാരണറാലികളിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മിസോറാമിലെത്തും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കൊലെബിരയിൽ സിറ്റിംഗ് എം എൽ എ യെ തൽസ്ഥാനത്ത് നിന്നും നീക്കിയതിനെത്തുടർന്നും ജസ്ദാനിൽ കോൺഗ്രസ് എം എൽ എ ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്നുമാണ് സീറ്റ് ഒഴിവ് വന്നത്

അനന്ത്നാഗ് ജില്ലയിലെ ബിജ്ബെഹാര പട്ടണത്തിൽ ഇന്ന് രാവിള്ലയായിരുന്നു സംഭവം

ഒട്ടേറെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മെൽബൺ സർവ്വകലാശാലയിലെ വിദ്യാർത്ഥികളെ ശ്രീ രാംനാഥ് കോവിന്ദ് ഇന്ന് അഭിസംബോധന ചെയ്യും

പ്രതിരോധം കൃഷി വാണിജ്യ നിക്ഷേപങ്ങൾ ശാസ്ത്രം വിവരസാങ്കേതിക വിദ്യ ഊർജ്ജം തൂട്ങ്ങിയ ഖനനം വിഷയങ്ങളിൽ ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ഉഭയകക്ഷി ഇരുപ്പരും സഹകരണം വിലയിരുത്തുമെന്ന് വിദേശകാര്യമന്ത്രാലയം പ്യക്തമാക്കി

ന്യൂഡൽഹി സർ ഗംഗാറാം ആശുപത്രിയിലാണ് സംഭവം

ഇത് കാരണം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന സ്ഥിതിയിലാണ് കുഞ്ഞിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് വിജയകരമായി നടത്തിയ ശസ്ത്രക്രിയയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞതായി ആശുപത്രി അധികൃതർ അറിയിച്ചു

പരിപാടി ആകാശവാണി രാവിലെ പ്രക്ഷേപണം ചെയ്യും

റിപ്പോർട്ടിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ റവന്യൂ മന്ത്രി ചന്ദ്രകാന്ത് പാട്ടീൽ അധ്യക്ഷനായ ഏഴംഗ മന്ത്രിസഭാ ഉപസമിതിക്ക് ഗവൺമെന്റ് രൂപം നൽകി മറാത്ത സമുദായത്തിന് സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ ശുപാർശ ചെയ്തത്

പശ്ചിമ ബംഗാളിലെ പുരുലിയ ബീർഭും ജില്ലകളിലും ഒഡീഷയിലെ താൽച്ചർ ബീഹാറിലെ ഭാഗൽപൂർ ഝാർഖണ്ഡിലെ കിഴക്കൻ ബോക്കാറോ തെക്കൻ കാരൻപുര എന്നിവിടങ്ങളിലാണ് ഖനികൾ കണ്ടെത്തിയതെന്ന് ജി

ഐ യുടെ കിഴക്കൻ മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ ആർ

ഉഗ്രതാര ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങിയ യാത്രക്കാർ സഞ്ചരിച്ച ബസാണ് അപകടത്തിൽ പെട്ടത്

ഗുരുനാനാക്ക് ജയന്തി അഥവാ ഗുർപുരാബിനോട് അനുബന്ധിച്ച് സിക്ക് സമൂഹത്തിന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആശംസകൾ നേർന്നു വിശദവിവരങ്ങളുമായി കരോൾ എബ്രഹാം ഗുരുനാനാക്കിന്റെ ജീവിതവും ദർശനങ്ങളും സമാധാനത്തിന്റെയും സേവനത്തിന്റെയും പാതയിലേക്കുള്ള വഴികാട്ടിയാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ടിറ്ററിൽ കുറിച്ചു ഗുരുനാനാക്ക് ദേവ്ജിയുടെ ചിന്തകൾ സാധാരണ ജനങ്ങൾക്ക് ഉദ്ദീപകമാകട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസിച്ചു

രാജ്യമൊട്ടാകെ ഇന്ന് കാർത്തിക പൂർണിമയും ആഘോഷിക്കുകയാണ്

ഇതോടനുബന്ധിച്ച് വാരണാസിയിൽ ഗംഗാനദി ഉൾപ്പെടെയുള്ള പ്രമുഖ നദികളിൽ സ്നാന ചടങ്ങുകളും നടക്കുകയാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇത് സുരക്ഷാസേന തടയാൻ ശ്രമിച്ചുതിനെ തുടർന്നുണ്ടായ വെടിവെയ്പ്പിലാണ് ഇരുഭാഗത്തും ആൾനാശം സംഭവിച്ചത്

തീർഥാടകർക്ക് ശരണം വിളിക്കുന്നതിനും കൂട്ടമായി എത്തുന്നതിനും നിരോധനാജ്ഞ തടസ്സമല്ല

ശബരിമലയിൽ പ്രശ്നത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്ന പരാതിയെ തുടർന്ന് ആയിരത്തോളം ഫേസ് ബുക്ക് അക്കൌണ്ടുകളും പോലീസ് നിരീക്ഷിച്ച് വരികയാണ്

നിർമാണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു

അഞ്ചു വേദികളിലായാണ് ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്

പരമ്പരയുടെ തുടക്കത്തിൽ നേരിയ പിഴവ് സംഭവിച്ച ഇന്ത്യൻ ടീം കളി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞായറാഴ്ചയാണ് മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം